ലോകകപ്പ് മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി

എ സ്ഥാനാർത്ഥിയും രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ബി ജെ പി എം പിയുമായ ഓം ബിർള എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു വിശദാംശങ്ങളുമായി ദീപു

തുടർന്ന് പ്രോട്ടം സ്പീക്കർ ഡോ

സേവനത്തിനായി ഉഴിഞ്ഞുവച്ച ജീവിതമാണ് ശ്രീ ഓം ബിർളയുടെതെന്ന് പ്രധാനമന്തി നരേന്ദ്രമോദി പറഞ്ഞു സഭയുടെ സുഗമമായ നടത്തിപ്പിനായി തന്റെ പാർട്ടിയുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് ആദിർ രഞ്ജൻ ചൌധരി അറിയിച്ചു സ്പീക്കറായി തന്നെ തെരഞ്ഞെട്ടുത്തതിന് ശ്രീ

പിന്നീട് ്ലോകസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശപ്പാണി

ജെ പി നേതാക്കളായ അമിത്ഷായും സ്മൃതി ഇറാനിയും ലോക്സഭയിലേയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഗുജറാത്തിൽ രണ്ട് രാജ്യസഭാ സീറ്റിൽ ഒഴിവുവന്നത്

പാർലമെന്റിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കൽ വികസനം എന്നീ വിഷയങ്ങളാണ് പ്രധാന അജണ്ട

സൌജന്യ ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

രോഗം ബാധിച്ച ഏറ്റവും കൂടുതൽ കുട്ടികൾ ചികിൽസയിലുള്ള എസ്

അതിനിടെ മസ്തിഷ്ക ജൂരം പ്രതിരോധിക്കാനായി മുതിർന്ന ശിശുരോഗ വിദഗ്ധരരുടെ അഞ്ച് സംഘങ്ങളെയും അനുബന്ധ ആരോഗ്യപ്രവർത്തകരേയും ബീഹാറിലേയ്ക്ക് അയയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചു

ഹർഷവർദ്ധന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം

കർണാടകയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് അദ്ധ്യക്ഷനേയും വർക്കിംങ് പ്രസിഡന്റിനേയും മാത്രം നിലനിർത്തിയശേഷം കമ്മറ്റി പിരിച്ചു വിട്ട എ

സംസ്ഥാന കമ്മറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് എ ഐ

സിയുടെ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഏഴു തവണ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന റോഷൻ ബെയ്ഗ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ മുൻമുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മോശം പ്രകടനത്തെതുടർന്ന് റോഷൻ ബെയ്ഗ് സിദ്ധരാമയ്യേയും ദിനേശ് ഗുണ്ടുറാവുവിനേയും കെ

വേണുഗോപാലിനേയും വിമർശിച്ചിരുന്നു

കോടിക്കണക്കിന് രൂപയുടെ രത്നവ്യാപാര തട്ടിപ്പ് അന്വേഷിക്കുന്നതിന് കർണ്ണാടക ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണസംഘം നടത്തിയ തെരച്ചിൽ മൻസൂർ ഖാന്റെ മുൻ ഭാരൃ തബാന്യു ബാനുവിന്റെ വസതിയിൽ നിന്നാണ് ആഭരണങ്ങൾ പിടിച്ചെടുത്തത്

മൻസൂർഖാനെ പിടികൂടുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായവും തേടിയിട്ടുണ്ട്

നേരത്തേ സംസ്ഥാനത്തെ എസ്

ഇ ടി സ്കാൻ സൌകരൃം ഉൾപ്പെടെ വിദഗ്ധ ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതാണ് ജമ്മുകാശ്മീരിൽ അനുവദിച്ചിട്ടുള്ള കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ

ഐ ഐ ടി ബോംബെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാല

ഐ

കേന്ദ്ര മാനവവിഭവ ശേഷി വകുപ്പ് മന്ത്രി ഡോ രമേശ് പോക്തിയാൽ നിഷായ് പട്ടികയിൽ ഇടം നേടിയ സർവകലാശാലകളെ അഭിനന്ദിച്ചു

ദക്ഷിണ കൊറിയയുമായും സമാനമായ കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടതായി ശ്രീ

ഇത്തരത്തിലുള്ള സഹകരണം ഇന്ത്യയുമായി മറ്റ് രാജ്യങ്ങൾക്കുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് സഹായിക്കുമെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

ഈസ്റ്റർ ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്ത് മുസ്ലീങ്ങൾ ആക്രമിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ മാസം ആദ്യം മുസ്ലീം മന്ത്രിമാർ രാജി സമർപ്പിച്ചത് യുണൈറ്റഡ് നാഷണൽ പാർട്ടി അംഗങ്ങളായ മന്ത്രിമാരിൽ കബീർ ഹാഷീമും എൽ എച്ച് എ ഹലീമുമാണ് പ്രസിഡന്റ് മൈത്രിപാലാ സിരിസേനയുടെ സാന്നിദ്ധ്യത്തിൽ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്

അമ്പെയ്ത്ത് താരങ്ങൾക്കുള്ള പരിശീലനത്തിന് ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി നെതർലന്റിലെ ദൻ ബോഷിൽ ഈയിടെ നടന്ന ലോകചാമ്പ്യൻഷിപ്പിൽ ഒരു വെള്ളിയും രണ്ട് വെങ്കലവുമടക്കം മൂന്ന് മെഡലുകളുമായാണ് ഇന്ത്യൻ അമ്പെയ്ത്ത് ടീം മടങ്ങിയെത്തിയത്

പകരം വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ റിഷഭ് പന്തിനെ ഉൾപ്പെടുത്തി തള്ളവിരലിനേറ്റ പരിക്കിൽ നിന്ന് മോചിതനാകാത്തതിനെ തുടർന്നാണ് ധവാനെ ഒഴിവാക്കിയത് ലണ്ടനിൽ ഓസ്ട്രേലിയയുമായുള്ള മത്സരത്തിനിടെയാണ് മുപ്പത്തിമൂന്നുകാരനായ ശിഖർ ധവാന് ഇടത്തേതള്ളവിരലിന് പരിക്കേറ്റത്

കോപ്പൻ ഹേഗനിൽ നടന്ന മറ്റൊരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോംഗ്ജമ്പിൽ ഇന്ത്യയുടെ ദേശീയ റെക്കാർഡ് ജേതാവ് മുരളി ശ്രീശങ്കർ സൂർണ്ണ് നേടി

ആത്മഹത്യ ദൌർഭാഗൃകരമാണെന്നും സംഭവം ഗൌരവപൂർവ്വം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു വിഷയത്തിൽ അടിയന്തരപ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി

മണ്ണിലും കുടിവെള്ളത്തിലും ദോഷഫലം ഉളവാക്കുന്ന നാലു കളനാശിനികൾ സംസ്ഥാനത്ത് സമ്പൂർണമായി നിരോധിച്ചു ജൈവ പച്ചക്കറി എന്ന പേരിൽ രാസവളം ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ വിറ്റഴിക്കുന്നത് തടയാൻ പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു